ത ഇന്ന് സാർവ്വദേശീയ തൊഴിലാളി ദിനം

വാർത്തകൾ വിശദമായി സായുധ സേനകൾക്കാവശ്യമായ ഉപകരണങ്ങൾക്കും ആയുധങ്ങൾക്കും മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്ന സാഹചര്യം പരമാവധി കുറക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദേശിച്ചു

രാജ്യരക്ഷാ മേഖലയിൽ സ്വയം പര്യാപ്തത നേടുന്നതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിങ്ങ് അമിത്ഷാ നിർമ്മലാ സീതാരാമൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ഥഥ സംസ്ഥാനത്തേക്ക് അവശ്യ സാധനങ്ങളുടെ വരവ് തൃപ്തികരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു

വിദ്യാലയങ്ങളിൽ ബാക്കി വന്ന ഉച്ചഭക്ഷണ അരി സാമൂഹ്യ അടുക്കളകൾക്ക് നൽകാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു ഈ അരിയും പയറും തദ്ദേശ സ്ഥാപനങ്ങളും സ്കൂളുകളും ആശയ വിനിമയം നടത്തി കൈമാറണം വിദ്യാഭ്യാസ മേഖലയിൽ ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് പാഠഭാഗങ്ങൾ ഓൺലൈനായി നൽകാൻ നടപടി പൂർത്തിയായിട്ടുണ്ട് കോവിഡ് ഏറെ ദോഷകരമായി ബാധിച്ച വിദ്യാഭ്യാസ മേഖല ബദൽ മാർഗങ്ങൾ തേടുകയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ലോക്ഡൌൺ മൂലം അടച്ച കെഎസ്ഇബി ക്യാഷ് കൌണ്ടറുകൾ തിങ്കളാഴ്ച്ച മുതൽ തുറക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു രുദ സംസ്ഥാനത്ത് ഇന്നലെ രണ്ട് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്

ഇന്നലെ പുതുതായി നാല് ഹോട്സ്പോട്ടുകൾ കൂടി പട്ടികയിൽ ഉൾപ്പെടുത്തി കൊല്ലം ജില്ലയിലെ ഓച്ചിറ തൃക്കോവിൽവട്ടം കോട്ടയം ജില്ലയിലെ ഉദയനാപുരം തിരുവനന്തപുരം നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി എന്നിവയാണ് പുതിയ ഹോട്സ്പോട്ടുകൾ

കുറുക്കുവഴികളിലൂടെ നുഴഞ്ഞു കയറുന്നതും ലോക്ക്ഡൌൺ ലംഘിക്കുന്നതും ആളുകൾ സംഘം ചേരുന്നതും ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷിക്കും

കോവിഡ് പരിശോധനാ ഫലം വൈകുന്നതിൽ പ്രതിഷേധിച്ചും പി സി ആർ ലാബ് സൌകര്യം ആവശ്യപ്പെട്ടും രാവിലെ മെഡിക്കൽ കോളജിനു മുന്നിൽ ഉപവാസ സമരം നടത്തുമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി അറിയിച്ചു

നിരീക്ഷണ കാലം കഴിഞ്ഞ മൂന്ന് പേരെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു കോവിഡ് നിയന്ത്രണം തുടരുന്നതിനാൽ നാളത്തെ തൃശൂർ പൂരം എഴുന്നള്ളിപ്പിന് ഒരാനയെ അനുവദിക്കണമെന്ന പാറമേക്കാവ് ദേവസ്വത്തിന്റെ അപേക്ഷ അനുവദിക്കാനാവില്ലെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു

ഇയാളുടെ അവസാന ഫലം കൂടി നെഗറ്റീവായാൽ ജില്ല പൂർണമായി കോവിഡ് മുക്തമാകും രുക കോട്ടയം ജില്ല റെഡ് സോണായും ഓച്ചിറ ഹോട്സ്പോട്ടായും പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആലപ്പുഴ നിന്ന് കോട്ടയം കൊല്ലം ജില്ലകളിലേക്കും തിരിച്ചും ജോലിക്കായി പോകുന്നവർ അതാത് ജില്ലകളിൽ താമസിക്കണമെന്ന് ആലപ്പുഴ ജില്ലാ കലക്ടർ ആവശ്യപ്പെട്ടു

രുദ വിദേശത്ത് കഴിയുന്ന പ്രവാസികളെ തിരിച്ചെത്തിക്കുന്ന കാര്യത്തിൽ അടുത്തയാഴ്ച്ച പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ അറിയിച്ചു കൊറോണ പ്രതിരോധത്തിന്റെ ഭാഗമായി ഒട്ടേറെ രാജ്യങ്ങളുടെ വിമാന സർവ്വീസുകൾ നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യമാണ് ഗവൺമെന്റിന് നേരിടേണ്ടി വരുന്നത്

ഇന്ത്യൻ എംബസികളും കോൺസുലേറ്റുകളുമായി ഗവൺമെന്റ് ബന്ധപ്പെട്ടുവരികയാണെന്നും അവിടങ്ങളിൽ കഴിയുന്ന ഇന്ത്യക്കാർക്ക് ഭക്ഷണവും മരുന്നും താമസവുമുൾപ്പെടെ സൌകര്യങ്ങൾ ലഭ്യമാക്കിവരികയാണെന്നും മുരളീധരൻ പറഞ്ഞു

ഉത്തരവനുസരിച്ച് പരമാവധി രണ്ട് മാസത്തേക്കായിരിക്കും അഡ്ഹോക്ക് നിയമനമെന്ന് അവർ തിരുവന്തപുരത്ത് പറഞ്ഞു

എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിനോദം എട്ട് മണിക്കൂർ വിശ്രമം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് അമേരിക്കയിലെ തൊഴിലാളികൾ നടത്തിയ ഐതിഹാസിക പണിമുടക്കിന്റേയും വിജയത്തിന്റേയും ഓർമ്മകൾ പുതുക്കാനാണ് ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളിൽ മെയ് ദിനം ആഘോഷിക്കുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും തൊഴിലാളി സമൂഹത്തിന് ആശംസകൾ നേർന്നു ഐക്യത്തിലൂടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും തൊഴിൽ മേഖലയെ ആരോഗ്യപരവും സുരക്ഷിതവുമാക്കുന്നതിനും എല്ലാവർക്കും മഹനീയ വിജയനം ആശംസിക്കുന്നതായി ഗവർണർ മെയ് ദിന സന്ദേശത്തിൽ പറഞ്ഞു ദുരിതം നേരിടുന്ന തൊഴിലാളി വർഗത്തോട് പ്രതിബദ്ധത ആവർത്തിച്ച് വ്യക്തമാക്കുന്നതായും തൊഴിലാളി സമൂഹത്തിന് കോവിഡ് പ്രതിസന്ധി മറികടക്കാൻ എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു രംഭ ഇടുക്കി രൂപതയുടെ ആദ്യ മെത്രാൻ മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ അന്തരിച്ചു

ഇടുക്കിയിലെ ഭൂസമരങ്ങൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹം ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ രക്ഷാധികാരി ആയിരുന്നു രുര ദുബായിയിൽ മരണമടഞ്ഞ പ്രമുഖ ആഗോള വ്യവസായി അറക്കൽ ജോയിയുടെ മൃതദേഹം വയനാട്ടിലെ വീട്ടിലെത്തിച്ചു

രുമ കാസർകോട് ജില്ലയിലെ കാഞ്ഞങ്ങാട്ട് മൂന്ന് കുട്ടികൾ ചതുപ്പിലെ വെള്ളക്കെട്ടിൽ മുങ്ങിമരിച്ചു പല്ലൂരാവിയിലെ ബാവാനഗറിലെ ബഷീർ അജ്നാസ് നിഷാദ് എന്നീ കുട്ടികളാണ് മരണമടഞ്ഞത്

കെരിച്ചേരിൽ ലോറി താഴ്ച്ചയിലേക്ക് മറിഞ്ഞ് ആന്ധ്രാ ഗൂഡല്ലൂർ സ്വദേശി വിജയകുമാറാണ് മരിച്ചത് രുര സംസ്ഥാനത്തെ ക്രഷ് ജീവനക്കാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചതായി മന്ത്രി കെ